രാജ്യരക്ഷാ മന്ത്രിയായശേഷമുള്ള ആദ്യ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി രാജ്നാഥ്സിംഗ് മൊസാംബിക്കിലെത്തി

റിപ്പോർട്ട് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രകാശനം ചെയ്യും

ഇന്നലെ വൈകീട്ടോടെയാണ് രാഷ്ട്രപതി കൊട്ടോണുവിൽ എത്തിചേർന്നത് കൂടിക്കാഴ്ചയെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ കരാറുകളിൽ ഒപ്പുവെയ്ക്കും പോർട്ടോ നോവോയിലെ ദേശീയ അസംബ്ലിയേയും ശ്രീ

കൊട്ടോണുവിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ ആഫ്രിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് രാഷ്ട്രപതിയുടെ ആഫ്രിക്കൻ സന്ദർശനം ബെനീൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ശ്രീ

ആഫ്രിക്കൻ രാജ്യവുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതാണ് സന്ദർശന ലക്ഷ്യം

രാവിലെ പതിനൊന്നിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിശ്വാസപ്രമേയം അവതരിപ്പിക്കും തുടർന്നാണ് വോട്ടെടുപ്പ് വിശദാംശങ്ങളുമായി ഗോപകുമാർ

അയോഗ്യരാക്കിയ എം എൽ എമാർക്ക് വിശ്വാസവോട്ടെടുപ്പിൽ പങ്കെടുക്കാനാകില്ല

ജെ

ഒരു അംഗം മാത്രമുള്ള ബി

പി പ്രതിപക്ഷത്തോടൊപ്പമാണ്

വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെന്ന് എല്ലാ എം

എ മാർക്കും ബി ജെ പി വിപ്പ് നൽകിയിട്ടുണ്ട്

നേരത്തേ സ്പീക്കർ അയോഗ്യരാക്കിയ റോഷൻ ബെയ്ഗ് ആനന്ദ് സിങ് എസ്

സോമ ശേഖർ എച്ച്

മറ്റുള്ളവരും കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ രാത്രി ഹൈദ്രാബാദിലായിരുന്നു ജയ്പാൽ റെഡ്ഡിയുടെ അന്ത്യം

മനുഷ്യകടത്തിൽ നിന്നും മോചനം പ്രാപിച്ചവരെ പുനരധിവസിപ്പിക്കുന്നതിനായ് നിർമ്മിച്ച അഭയകേന്ദ്രങ്ങൾ ഹൈദരാബാദിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മനുഷ്യകടത്ത് ചെറുക്കുകയും ഇതിന് ഇരയായവരെ കണ്ടെത്തി രക്ഷിക്കുകയും ചെയ്യാൻ ഏവരും തയ്യാറാവണമെന്നും ശ്രീ നായിഡു പറഞ്ഞു

കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് സാമ്പത്തിക സെൻസസ് നടപ്പിലാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സെൻസസ് നടക്കും സാമ്പത്തിക സെൻസസ് വഴി ലഭിക്കുന്ന വിവരങ്ങളിലൂടെയാണ് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ സാമൂഹ്യ സാമ്പത്തിക വികസനം സാധ്യമാകുന്നത്

ഫുൾബാഗ്ദി പ്രവിശ്യയിലെ ഉയർന്ന ജില്ലാ പൊലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പെയാണ് കീഴടങ്ങിയത് നിരവധി നക്സൽ ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് കീഴടങ്ങിയ മാവോയിസ്റ്റുകളെന്ന് പൊലീസ് പറഞ്ഞു

പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ പട്ടാളം നിയന്ത്രണ രേഖയിലേയ്ക്ക് വെടി ഉതിർക്കുകയായിരുന്നു ഷഹാപൂർ സുചിയാൻ എന്നീ മേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങളിലേയ്ക്കാണ് ഇന്നലെ വൈകിട്ട് അഞ്ചോടെ പാകിസ്ഥാൻ വെടി ഉതിർത്തത് ഇന്ത്യയും ശക്തമായി തിരിച്ചടിച്ചു

മൂന്നു ദിവസത്തെ സന്ദർശനത്തിനിടെ സൈനിക സഹകരണത്തിൽ മൂന്നൂ കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും വിവിധ മേഖലകളിലെ സഹകരണത്തിലൂടെ മെസാംബിക്കുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ട്വീറ്റർ സന്ദേശത്തിൽ പറഞ്ഞു മൊസാംബിക്കിലെ സായുധസേന ആസ്ഥാനവും ശ്രീ

സന്ദർശനത്തിനിടെ മൊസാംബിക് പ്രസിഡന്റ് രാജ്യരക്ഷാമന്ത്രി വിദേശകാര്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തും

മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ച സത്യമംഗലം ടൈഗർ റിസർവിനുള്ള അവാർഡ് വിതരണവും ശ്രീ

കടുവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ

ദേശീയ കടുവസംരക്ഷണ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൊജക്ട് ടൈഗർ ആണ് ഇതിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ടു നയിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ കടുവാസംരക്ഷണ കേന്ദ്രമാണ് ഉത്തരാഖണ്ഡിലെ ഹെയിലി നാഷണൽ പാർക്ക്

ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്

കാഠ്മണ്ഡുവിൽ ഇന്നലെ ഇന്ത്യ നേപ്പാൾ ലോജിസ്റ്റിക്സ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മേഖലയിലെ വ്യാപാര വിനിമയ വർദ്ധനവിനും പ്രശ്നരഹിത ഇടപാടുകൾക്കും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സൌഹൃദം വഴി വെയ്ക്കുമെന്നും ശ്രീ ശർമ്മ ചൂണ്ടിക്കാട്ടി

ജമ്മുകൾമീരിൽ ഈ മാസം ഒന്നാം തീയതി മുതലാണ് തീർത്ഥാടനം ആരംഭിച്ചത്

പുരുഷ വിഭാഗത്തിൽ ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു

ബോട്ടർക്രോസ് ഡൌൺ റിവർ സൂപ്പർഫൈനൽ എന്നിവയിൽ ഒന്നാംസ്ഥാനവും പ്രഫഷണൽ സ്താലോമിൽ മൂന്നാംസ്ഥാനവും നേടിയാണ് ഇവാൻ ചാംപ്യൻഷിപ്പിൽ കിരീടംചൂടിയത് കോഴിക്കോട്ടെ അന്താരഷ്ട്ര കയാക്കിംഗ് മത്സരത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരി റാപിഡ് പട്ടം നേടുന്നത്

ഇരവിപുരം വാളത്തുങ്കൽ ചകിരിക്കട സ്വദേശി സെയ്തലി യുടെ മൃതദേഹമാണ് പുലർച്ചെ മൂന്നരയോടെ താന്നി ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്